ആറാം വട്ടമാണ് കർഷക പ്രക്ഷോഭം അവസാനിപ്പിക്കാൻ കേന്ദ്രവും കർഷക സംഘടനകളും ചർച്ച നടത്തുന്നത്

പുതിയ കാർഷിക നിയമങ്ങൾക്ക് പുറമെ കാർഷികോത്പന്നങ്ങളുടെ താങ്ങുവില വായു മലിനീകരണം വൈദ്യുതി ലഭ്യത എന്നീ വിഷയങ്ങളും ചർച്ചയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കർഷകർ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് യുക്തിസഹമായ പരിഹാരമുണ്ടാക്കാൻ ഗവൺമെന്റിന് തുറന്ന മനസ്സാണെന്ന് കേന്ദ്രം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്

ഇതാദ്യമായാണ് ഓൺലൈനിൽ ലഭിച്ച അപേക്ഷകൾ പരിശോധിച്ച് തുടർ പ്രക്രിയകൾ പൂർണമായി ഓൺലൈനിൽ തന്നെ നടത്തി അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത് കേന്ദ്ര ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ മന്ത്രാലയം ഡിജിറ്റൽ രംഗത്തെ പുതിയ കണ്ടെത്തലുകളെ പ്രോത്സാഹിപ്പിക്കാനും ഗവൺമെന്റ് ഇ ഗവേണൻസ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനുമാണ് രണ്ടുവർഷത്തിലൊരിക്കൽ ഡിജിറ്റൽ ഇന്ത്യ അവാർഡ് ഏർപ്പെടുത്തിയത് ദേദ ബ്രിട്ടൻ ഉൾപ്പെടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ജനിതക മാറ്റം സംഭവിച്ച പുതിയ വൈറസിനെ കണ്ടെത്തിയ സാഹചര്യത്തിൽ സംസ്ഥാനത്തും ആവശ്യമായ കരുതൽ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി കെ

സംസ്ഥാനത്തെ മുഴുവൻ വിമാനത്താവളങ്ങളിലും നിരീക്ഷണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തി

രോഗകാരണമായ വൈറസ് ഏതിനമാണെന്ന് അറിയാൻ സ്രവം പൂനെ വൈറോളജി കേന്ദ്രത്തിലേക്ക് അയച്ചിട്ടുണ്ട് പുതിയ സാഹചര്യത്തിൽ കൂടുതൽ ഫസ്റ്റ്ലൈൻ ചികിത്സാ കേന്ദ്രങ്ങൾ ഒരുക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി രൂപമാറ്റം വന്ന വൈറസിനും നേരത്തെ നൽകുന്ന ചികിത്സ തന്നെയാണ് നൽകേണ്ടത്

മറ്റ് ജില്ലകളിൽ ഇതിൽ താഴെയാണ് രോഗബാധിതരുടെ എണ്ണം

ദേദ കോവിഡ് പശ്ചാത്തലത്തിൽ പുതുവത്സരാഘോഷങ്ങൾക്ക് കോഴിക്കോട് നഗരത്തിൽ പൊലീസ് കർശന ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനിച്ചു ബീച്ച് മാനാഞ്ചിറ എന്നിവിടങ്ങളിൽ നിന്ന് നാളെ വൈകീട്ട് ആറുമണിയോടെ മുഴുവൻ ആളുകളെയും ഒഴിപ്പിക്കും ആഘോഷങ്ങൾ നടക്കുന്ന ഹോട്ടലുകൾ റിസോർട്ടുകൾ ഫ്ളാറ്റുകൾ എന്നിവിടങ്ങളിൽ കർശന പരിശോധനയും നിരീക്ഷണവും ഉണ്ടായിരിക്കും

രാവിലെ ഒൻപതിന് കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ച് ഒരു മണിക്കൂറായിരിക്കും നിയമസഭ സമ്മേളിക്കുന്നത് കേന്ദ്രത്തിന്റെ കാർഷിക നിയമങ്ങൾ സംബന്ധിച്ച പ്രമേയം സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിക്കും ദേദ സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകളിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും

ജില്ലാ പഞ്ചായത്തിലേക്ക് കലക്ടറും ബ്ലോക്ക് ഗ്രാമ പഞ്ചായത്തുകളിലേക്ക് അതത് വരണാധികാരികളുമാണ് തിരഞ്ഞെടുപ്പ് നടപടികൾക്ക് നേതൃത്വം നൽകുക എതിർ സ്ഥാനാർത്ഥികൾ ഇല്ലെങ്കിൽ വോട്ടെടുപ്പില്ലാതെ തന്നെ അംഗത്തെ തിരഞ്ഞെടുത്തായി പ്രഖ്യാപിക്കും

തിരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന അംഗത്തിന് മുന്നിൽ പ്രതിജ്ഞയെടുക്കാൻ ആവശ്യമായ സൌകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്ന് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ദേദ മുഖ്യമന്ത്രിയുടെ കേരള പര്യടന പരിപാടി ഇന്ന് ഉച്ചകഴിഞ്ഞ് ആലപ്പുഴയിൽ സമാപിക്കും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തും എറണാകുളത്ത് രാവിലെയാണ് പര്യടന പരിപാടി നവകേരളത്തിന്റെ രണ്ടാംഘട്ട വികസനത്തിന് അഭിപ്രായങ്ങളും ആശയങ്ങളും തേടിയാണ് വിവിധ രംഗങ്ങളിലെ വിദഗ്ദ്ധരുമായി മുഖ്യമന്ത്രി ചർച്ച നടത്തുന്നത് ദ്ദേ ഈ വർഷത്തെ ഊർജ്ജ സംരക്ഷണ അവാർഡുകൾ ഇന്ന് തിരുവനന്തപുരത്ത് സമ്മാനിക്കും ഉച്ചയ്ക്ക് തിരുവനന്തപുരം ശ്രീകാര്യത്തെ എനർജി മാനേജ്മെന്റ് സെന്ററിൽ മന്ത്രി എം

ഊർജ്ജ സംരക്ഷണ രംഗത്ത് നേട്ടങ്ങൾ കൈവരിച്ച വൻകിട ഇടത്തര ചെറുകിട വ്യവസായ ശാലകൾക്കും കെട്ടിടങ്ങൾക്കും വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമാണ് പുരസ്കാരങ്ങളും പ്രശസ്തിപത്രവും നൽകുന്നത്

കോവിഡ് പശ്ചാത്തലത്തിൽ ഇത്തവണ വെർച്വലായാണ് തീർത്ഥാടനം സംഘടിപ്പിക്കുന്നത് ശാരദാ മഠത്തിലും മഹാ സമാധിയിലും സന്ന്യാസി വര്യന്മാരുടെ നേതൃത്വത്തിൽ പ്രത്യേക പൂജകൾ നടത്തിയശേഷം അല്പസമയത്തിനകം ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി വിശുദ്ധാനന്ദ ധർമ്മപതാക ഉയർത്തും മഠത്തിലെ പ്രധാന പൂജകളുടെയും കൊടിയേറ്റത്തിന്റെയും തത്സമയ സംപ്രേക്ഷണം ശിവഗിരി ടി വി വഴി ജനങ്ങളിലെത്തിക്കും ഓരോ ദിവസവും മുൻകൂട്ടി ബുക്ക് ചെയ്ത ആയിരം പേർക്കാണ് ശിവഗിരി തീർത്ഥാടനത്തിൽ പങ്കുചേരാവുന്നത് അന്നദാനം താമസസൌകര്യം എന്നിവ ഉണ്ടാവില്ല ദേദ മകരവിളക്ക് തീർത്ഥാടനകാലത്തിന് തുടക്കം കുറിയ്ക്കാൻ ശബരിമലയിൽ വൈകിട്ട് അഞ്ചിന് നട തുറക്കും നാളെ പുലർച്ചെ മുതൽ സന്നിധാനത്തേക്ക് ഭക്തരെ പ്രവേശിപ്പിക്കും

ദർശനത്തിനെത്തുന്നവർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്

എസ് എൽ ഫുട്ബോളിൽ എ

കെ മോഹൻ ബഗാൻ ചെന്നൈയിൻ എഫ്

ഇന്ന് ഹൈദരാബാദ് എഫ് സി ഗോവയെ നേരിടും രാത്രി ഏഴരയ്ക്ക് ഗോവയിലാണ് മത്സരം ദേദ കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്പോർട്സ് ഡിവിഷൻ അനുവദിച്ച് ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചതായി മന്ത്രി എ

സംസ്ഥാനത്തെ മൂന്നാമത് സ്പോർട്സ് ഡിവിഷനാണ് കുന്നംകുളത്ത് തുടങ്ങുന്നത് തിരുവനന്തപുരം ജി വി രാജ സ്പോർട്സ് സ്കൂളും കണ്ണൂർ സ്പോർട്സ് ഡിവിഷനുമാണ് നിലവിൽ കായിക പരിശീലനം നൽകുന്നത് ദേദ ഫാക്ടിന്റെ ആദ്യ മാനേജിംഗ് ഡയറക്ടറായിരുന്ന എം

കെ നായരുടെ ജന്മശതാബ്ദി ആഘോഷങ്ങൾ കൊച്ചിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു

ടിയെ ദേശീയ തലത്തിൽ മാത്രമല്ല അന്തർദേശീയ തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥാപനമാക്കി മാറ്റിയതിൽ എം

കെ നായരുടെ പങ്ക് നിർണായകമാണെന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു ദേദ കോഴിക്കോട്ടെ കോരപ്പുഴ പാലം നിർമ്മാണം ഫെബ്രുവരിയോടെ പൂർത്തിയാകുമെന്ന് അധികൃതർ അറിയിച്ചു

ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നിർമ്മിച്ച പാലം അപകടാവസ്ഥയിലായതിനെ തുടർന്ന് പുനർ നിർമ്മിക്കുകയായിരുന്നു ദ്ദേ കൊച്ചിയിൽ വീട്ടുജോലിക്കാരി ഫ്ളാറ്റിൽ നിന്ന് വീണുമരിച്ച സംഭവത്തിൽ ഫ്ളാറ്റുടമ ഇംതിയാസിനെ പൊലീസ് അറസ്റ്റ് ചെയ്തു ഒളിവിലായിരുന്ന പ്രതിക്ക് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നേരത്തെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു

ന്യൂഇയർ ആഘോഷങ്ങൾക്കുവേണ്ടി കൊണ്ടുവന്ന കഞ്ചാവാണിതെന്ന് പൊലീസ് പറഞ്ഞു കൊച്ചി സ്വദേശി സനോജ് തൊടുപുഴ സ്വദേശി മുനീർ എന്നിവരെയും കഞ്ചാവ് കൊണ്ടുവന്ന കാറും പിടിച്ചെടുത്തു ദര മഴക്കാലപൂർവ ശുചീകരണത്തിൽ ശേഖരിച്ച പാഴ് വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന ഗോഡൌണിനാണ് കോഴിക്കോട് ചെറുവണ്ണൂരിൽ ഇന്നലെ തീപിടിച്ചതെന്ന് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഇൻഡസ്ട്രിയൽ അസോസിയേഷൻ അറിയിച്ചു ആക്രി കടക്കാണ് തീപിടിച്ചതെന്ന പ്രചാരണം തെറ്റാണെന്ന് അവർ പറഞ്ഞു ദേദ മലപ്പുറം ജില്ലയിലെ കരുളായിയിൽ കാട്ടിനുള്ളിൽ പ്രസവിച്ച ആദിവാസി യുവതിയും കുഞ്ഞും മരിച്ചു ഉൾവനത്തിലെ മണ്ണളയിൽ താമസിച്ചിരുന്ന പ്രാക്തന ഗോത്രവർഗ യുവതി നിഷയും മൂന്നു ദിവസം പ്രായമായ ആൺ കുഞ്ഞുമാണ് മരിച്ചത് ദേദ സമൂഹത്തിൽ സ്ത്രീകൾക്കു നേരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾക്കെതിരെ സ്ത്രീസമൂഹം ശക്തമായി പ്രതികരിക്കണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ എം സി ജോസഫൈൻ പറഞ്ഞു വയനാട് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച വനിതാ കമ്മീഷൻ അദാലത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ പതിനൊന്ന് കേസുകൾ അദാലത്തിൽ തീർപ്പാക്കി